ത ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് യാത്രതിരിച്ച മലയാളികളെ അതിർത്തികളിൽ തടയുന്ന വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഇന്ന് പ്രത്യേക സിറ്റിങ്

എസ്

വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നത് ആശുപത്രികൾ ലാബുകൾ മെഡിക്കൽ സ്റ്റോർ അനുബന്ധ സേവനങ്ങൾ മാലിന്യ നിർമ്മാർജ്ജന ഏജൻസികൾ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ പാൽ വിതരണം സംഭരണം പത്രവിതരണം ചരക്കുനീക്കം തുടങ്ങിയവയ്ക്ക് ലോക്ക്ഡൌൺ ബാധകമല്ല രാവിലെ എട്ട് മുതൽ രാത്രി ഒമ്പത് വരെ ഹോട്ടലുകൾക്ക് പാർസൽ സർവീസ് നൽകാനായി തുറന്നു പ്രവർത്തിക്കാം

എന്നാൽ വാഹനങ്ങൾ അനാവശ്യമായി നിരത്തിലിറക്കുന്നത് കർശനമായി വിലയിക്കിയിട്ടുണ്ട്

അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ ജില്ലാ കലക്ടറിൽ നിന്നോ പൊലീസിൽ നിന്നോ പാസ് വാങ്ങണം വിവാഹ മരണ ചടങ്ങുകൾക്ക് നിയന്ത്രണം ബാധകമല്ല തിരുവന്തപുരം കോഴിക്കോട് കൊച്ചി കോർപ്പറേഷനുകളിലെ ചില തിരഞ്ഞെടുത്ത റോഡുകൾ രാവിലെ അഞ്ചു മുതൽ പത്തുവരെ അടച്ചിടും

ഇത് ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണെങ്കിലും പ്രതീക്ഷിച്ചിരുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവരുടെ കൂടെ യാത്ര ചെയ്തവരുടെ നിരീക്ഷണം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു രുമ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം കോട്ടക്കൽ ചാപ്പനങ്ങാടി സ്വദേശിക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് വ്യക്ക സംബന്ധമായഅസുഖത്തെ തുടർന്ന് വ്യാഴാഴ്ച പ്രത്യേക വിമാനത്തിൽ കരിപ്പൂരിൽ എത്തിയ ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ദേദ കണ്ണൂർ ജില്ലയിൽ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു വിദേശത്തുനിന്നും ഇതര സംസ്ഥാനങ്ങളിൽനിന്നും മലയാളികൾ എത്തുന്ന സാഹചര്യത്തിലാണ് നടപടി

എസ് ജലാശ്വ ഇന്ന് രാവിലെ കൊച്ചിയിലെത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ സമുദ്രസേതു പദ്ധതി പ്രകാരം നാലു കപ്പലുകളാണ് മാലിദ്വീപിൽ നിന്ന് രണ്ടായിരത്തോളം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നത് ഐഎൻഎസ് മഗർ ഇന്ന് തൂത്തുക്കുടിയിലേക്ക് മാലി ദ്വീപിൽ നിന്നും പുറപ്പെടും രേര കൊല്ലം ജില്ലയിലെത്തിയ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയ സൌകര്യങ്ങൾ മന്ത്രി ജെ

കോവിഡ് ഭീഷണി പൂർണമായും ഒഴിയാത്ത സാഹചര്യത്തിൽ വിട്ടുവീഴ്ച്ചയില്ലാത്ത പ്രവർത്തനം ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണമെന്ന് മന്ത്രി പറഞ്ഞു

റിയാദിൽ നിന്ന് കോഴിക്കോട് വഴിയും ബഹറിനിൽ നിന്ന് കൊച്ചി നെടുമ്പാശേരി വഴിയുമാണ് ഇവർ എത്തിയത്

വാളയാർ തലപ്പാടി അടക്കം ചെക്പോസ്റ്റുകളിൽ പാസ് കിട്ടാതെ കേരളീയർ കുടുങ്ങിയ പശ്ചാത്തലത്തിലാണ് കോടതി സ്വമേധയാ ഇടപെടുന്നത് ജസ്റ്റിസുമാരായ ഷാജി പി ചാലി എം ആർ അനിത എന്നിവർ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് രുമ ഇതര സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗവ്യാപനമുള്ളതിനാൽ ആശങ്കയുണ്ടെന്നും ജാഗ്രതയും ശ്രദ്ധയും അനിവാര്യമാണെന്നും മന്ത്രി എ

രുമ ഡൽഹിയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ നാട്ടിലെത്തിക്കാൻ ഉടൻ സെപ്ഷ്യൽ ട്രയിനുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്ര റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയലിന് കത്ത് നൽകി

രുര മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളോട് സംസ്ഥാന ഗവൺമെന്റിന്റെ സമീപനം വളരെ ക്രൂരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ

അവരെ നാട്ടിലെത്തിക്കാനുള്ള യാതൊരു നടപടിയും ഗവൺമെന്റ് ചെയ്യുന്നില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

എസ് ആർ

സി ബസ്സുകൾ ഉപയോഗപ്പെടുത്തി സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ കൊണ്ടുവരാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീർ കോഴിക്കോട് ആവശ്യപ്പെട്ടു ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ദേദ വാളയാറിലെ കേരള അതിർത്തി മുതൽ മൂന്ന് കിലോ മീറ്റർ വരെ നിയന്ത്രണ മേഖലയായി പ്രഖ്യാപിച്ചതായി പാലക്കാട് ജില്ലാ കലക്ടർ ഡി ബാലമുരളി അറിയിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതിർത്തി കടന്ന് നിരവധി ആളുകൾ എത്തുന്നതിനാൽ രോഗവ്യാപനം തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി പാസില്ലാതെ ഇന്നലെ അതിർത്തിയിൽ എത്തിയവരെ കോയമ്പത്തൂർ ജില്ലാ ഭരണകൂടം സജ്ജമാക്കിയ താൽക്കാലിക വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും ജില്ലാകലക്ടർ അറിയിച്ചു

എന്നാൽ ഏതെങ്കിലും രോഗ ലക്ഷണമുള്ളവർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ വിവരമറിയിച്ച് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും അധികൃതർ പറഞ്ഞു

അമ്മയുടെ കരുതലിനെ ഓർമ്മിക്കാനായി അമ്മമാർക്കായി സമർപ്പിക്കപ്പെട്ട ദിനം നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ പര്യായമാണ് അമ്മ

ലോകത്തൊരിടത്തും ആഘോഷങ്ങൾ നടക്കാത്ത ദുരിതകാലത്താണ് ഈ വർഷത്തെ മാത്യദിനം രുമ സംസ്ഥാനത്ത് ശിശു മരണ നിരക്ക് പത്തിൽ നിന്ന് ഏഴാഴി കുറയ്ക്കാൻ കഴിഞ്ഞത് നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

രുമ ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ സിബിഎസ്

ഒന്നരക്കോടിയിലേറെ ഉത്തരക്കടലാസുകൾ ഇതിനകം ശേഖരിച്ചിട്ടുണ്ടെന്നും ഇവ മൂല്യനിർണയത്തിനായി ഇന്നു മുതൽ അധ്യാപകർക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു